നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ സമ്പൂർണ ബജറ്റ് കർഷക ക്ഷേമത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഊന്നൽ

കോർപ്പറേറ്റ് നികുതിയിലും ഇളവ്

നരേന്ദ്രമോദി ബജറ്റ് നിർദേശം സഹകരണ പ്രസ്ഥാനത്തിന് ദോഷകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പാക്കേജ് വേണ്ടിവന്നാൽ പുനഃപരിശോധിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്

ജീവനക്കാർ സുരക്ഷിതർ

സാമ്പത്തിക ്മുന്നേറ്റം കരുതൽ ഉന്നമനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി വരുമാന മാർഗങ്ങൾ തുടങ്ങിയാണ് ലക്ഷ്യമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രധനമന്ത്രി നിർമല സീതാരാമൻ ല്ലോക്സഭയിൽ വൃക്തമാക്കി

പൊതുമേഖലാ ബാങ്കുകളെ നിരീക്ഷിക്കാനും നിക്ഷേപങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും പുതിയ സംവിധാനം ഏർപ്പെടുത്തും

ഡി ബി

യുടെ ഗവൺമെന്റ് ഓഹരികളിൽ കുറച്ച് വിൽക്കാനും ് ന്റീക്കമുള്ളതായി ധനമന്ത്രി പറഞ്ഞു

കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കത്തിനായി പൊതു സ്ഥകാര്യ പങ്കാളിത്തതോടെ ഇന്ത്യൻ റെയിൽവെയുമായി സഹകരിച്ച് കിസാൻ റെയിൽ പദ്ധതി നടപ്പാക്കും കാർഷികോൽപന്നങ്ങൾക്കായി ഓൺലൈൻ വിപണിയും ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി ചേർന്ന് കൃഷി ഉഡാൻ പദ്ധതിയും ആവിഷ്കരിക്കും

പൊതു സ്ഥാപിക്കാളിത്ത്തോടെ എല്ലാ ജില്ല ആശുപത്രികൾക്കൊപ്പവും ഒരു മെഡിക്കൽ കോളെജിനെ ബന്ധിപ്പിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്

രാജ്യത്ത് പുതിയ അഞ്ച് സ്മാർട്ട് സിറ്റികൾ കൂടി ആരംഭിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ശ്രീമതി നിർമലാ സീതാരാമൻ അറിയിച്ചു ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർധിപ്പിക്കാൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തും

ഇന്ത്യയിൽ സ്കോളർഷിപ്പോടെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കായി കചഉടഅഠ പരീക്ഷ നടത്തും

അംഗൻവാടി ഗ്രാമപഞ്ചായത്ത് പൊലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഇതിന്റെ ഭാഗമായി ഒരുലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കും ഭാരത് നെറ്റ് പദ്ധതിക്കായി ആറായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്

റെയിൽവെ ലൈൻ വൈദ്യുതീകരിക്കുമെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു റെയിൽവെ ഭൂമിയിലും ട്രാക്കുകൾക്ക് സമീപവും സൌരോർജ്ജ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കും പ്രസിദ്ധമായ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് തേജസ് മാതൃകയിൽ കൂടുതൽ ട്രെയിനുകൾ ആരംഭിക്കും

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടേയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടേയും ക്ഷേമത്തിന് വൻ തുകയാണ് ഈ ബ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്

വിദ്യാഭ്യാസ മേഖലയിലെ പങ്കാളിത്ത ശരാശരിയിൽ പെൺകുട്ടികൾ മുന്നിലാണെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി ധനമന്ത്രി പറഞ്ഞു

ഊർജ്ജോത്പാദന മേഖല്ലയിലെ ആഭ്യന്തര സ്റ്റാർട്ട് അപ്പുകൾക്കും കോർപ്പറേറ്റ് നികുതിയില്ലെ ഇളവ് ലഭ്യമാക്കും

പാദരക്ഷകൾ ക്ളിപ്പാട്ടങ്ങൾ ചില സ്റ്റേഷനറി സാധനങ്ങൾ തുടങ്ങിയവയ്ക്കും വില് കൂടും

സിഗരറ്റ് മറ്റ് പുകയിലെ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മേൽ ദേശീയ ദുരന്ത വിഭാഗ തീരുവ കൂടി ചുമത്തും

പ്രക്ഷേപണം കേന്ദ്രബജറ്റ് സംബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം പ്രക്ഷേപണം ചെയ്യും

ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക് വിദ്യാർത്ഥികൾക്കാണെന്നും ലോക്സഭാ ടി വിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു

ബജറ്റ് തോമസ് ഐസക് സാമ്പത്തിക മാന്ദ്യത്തെ നേരിടാനുള്ള ഒന്നും തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു

ജെ

പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണദാസ്

പ്രേമചന്ദ്രൻ എം

പ്രതികരിച്ചു

സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തി

കൽപ്പറ്റയിൽ വിവിധ വകുപ്പു മേധാവികൾ പങ്കെടുത്ത ഉന്നതതല യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാവോയിസ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആദിവാസി കോളനികളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു

ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ്

വനിതാ ഹോക്കി ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ബി ഡിവിഷൻ മത്സരത്തിൽ യൂക്കോബാങ്ക് ഹോക്കി അക്കാദമിക്ക് വെങ്കലം

കേസിൽ രണ്ടാമത്തെ പ്രതിയുടെ ദയാഹർജിയാണ് രാഷ്ട്രപതി തള്ളുന്നത് മറ്റൊരു പ്രതിയായ മുകേഷ് കുമാർ സിംഗിന്റെ ദയാഹർജി രാഷ്ട്രപതി നേരത്തെ തള്ളിയിരുന്നു ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് മുമ്പാകെ ഇതുവരെ സമർപ്പിച്ച ദയാ ഹർജികളിലെല്ലാം തീർപ്പായി